കളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നു ലോക കേരള സഭയുടെ ആദൃ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ദുബായിൽ തുടക്കമായി

കൊച്ചിയിൽ ഐ എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ് സിയെ നേരിടും

ജീവത്യാഗം വരിച്ച ജവാൻമാരുടെ രക്തം പാഴാവില്ലെന്നും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താമെന്ന അയൽരാജ്യത്തിന്റെ ശ്രമം വിലപ്പോവില്ലെന്നും നരേന്ദ്രമോദി വൃക്തമാക്കി

അതേസമയം പാകിസ്ഥാന് നല്കിയ സൌഹൃദ രാഷ്ട്ര പദവി ഇന്ത്യ പിൻവലിച്ചു വാഗാ അതിർത്തി വഴിയുള്ള വ്യാപാരത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി

ആക്രമണത്തിൽ പാകിസ്ഥാന് നേരിട്ട് പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ പ്രതിഷേധം പാക്സ്ഥാനപതിയെ വിളിച്ചുവരുത്തി അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തരമന്ത്രി രാജ്നാഥ്സിംഗിന്റെ ശ്രീനഗർ സന്ദർശനത്തിനുശേഷം സ്ഥിതിഗതികൾ ചർച്ചചെയ്യാൻ നാളെ സർവകക്ഷി യോഗം വിളിക്കുമെന്നും അരുൺജെയ്റ്റ്ലി അറിയിച്ചു

രാജ്യം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക യാണ് വേണ്ട തെന്നും ഇപ്പോൾ ഇരുവരും ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ഭീകരർക്കായി പുൽവാമ അടക്കം സ്ഥലങ്ങളിൽ സുരക്ഷാസേന തെരച്ചിൽ നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് അല്പസമയത്തി നകം കശ്മീരിലെത്തും അതിനിടെ പ്രധാനമന്ത്രിയുടെ അധ്യ ക്ഷ ത യിൽ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കാബിനറ്റ് പ്രത്യേക ഉപസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു

വിവരങ്ങൾ കൈമാറുന്നതിൽ അടക്കം ഇന്റലിജൻസിന് വീഴ്ചയുണ്ടായതായി കശ്മീർ ഗവർണർ സത്യപാൽ മാലിക് പറഞ്ഞു ആക്രമണത്തിന് പിന്നിൽ പാകിസ് താനാണെന്ന ഇന്തൃയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പാകിസ്താൻ പ്രതികരിച്ചു

എല്ലാ ഭീകരസംഘട നകൾക്കും പിന്തുണ്ടനിൽകുന്ന പാക് നിലപാട് അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൌസ് പത്രക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു

വയനാട് ലക്കിടി സ്വദേശി വി വസന്ത കുമാറിന്റെ മൃതദേഹം കരിപ്പൂർ വിമാനത്താവളം വഴി അദ്ദേ ഹ ത്തിന്റെ വീട്ടിലെത്തിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ വസന്തകുമാറിന്റെ വിയോഗത്തിൽ അനുശോചനമറിയിച്ചു

കോഴിക്കോട് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ കൈത പ്പൊയിൽ വാർഡിലും കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലും എൽ ഡി എഫ് വിജയിച്ചു ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ആർ എം പി ഐ സീറ്റ് നില നിർത്തി പി ശ്രീജിത്താണ് ഇവിടെ ജയിച്ചത് കണ്ണൂരിൽ മൂന്ന് വാർഡുകളിലും എൽ ഡി എഫ് ജയിച്ചു

ആലപ്പുഴ ജില്ലാകോടതി വാർഡിൽ കോൺഗ്രസ് വിമതനാണ് മത്സരിച്ചത് ലോക കേരള സഭയുടെ ആദ്യ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ദുബായിൽ തുടക്കമായി രണ്ടു ദിവസങ്ങളിലായി എത്തിസലാത്ത് അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭാ സ്പീക്കർ പി

പ്രവാസി നിക്ഷേപം സ്വരൂപിക്കാൻ പ്രത്യേക കമ്പനി പ്രവാസി ഗവേഷണത്തിന് അന്താരാഷ്ട്ര പഠനകേന്ദ്രം പ്രവാസികളുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ കമ്പനി പുനരധിവാസ പദ്ധതികൾ എന്നിവ ലോക കേരളസഭ യിൽ പ്രഖ്യാപിച്ചു രാജ്യത്ത് ഹിന്ദുവികാരം ഇളക്കിവിടുന്ന ബി ജെ പി കോർപ്പറേറ്റ് ഭരണമാണ് നടത്തുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു അറുപതിനായിരത്തോളം കർഷകരാണ് രാജ്യത്ത് ഇതിനകം ആത്മഹത്യ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് നേതൃത്വം നല്കുന്ന കേരള സംരക്ഷണയാത്രയുടെ തെക്കൻ മേഖലാ പര്യട നത്തിന് തുടക്കമിട്ട് തിരുവനന്തപുരം വട്ടിയൂർകാവിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി

സഹസ്ര കോടീ ശ്വരന്മാരുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ബന്ധമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മഹാരാജാസ് കോളജിലെ അഭിമന്യു വിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം എവിടെയെന്ന് സി പി ഐ എം വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ആൺകുട്ടികളുടെ ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിന് ഗുജറാത്തിലെ നദിയാദിൽ തുടക്കം

തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാജാഥ നാളെ കാസർക്കോട് ഉപ്പളയിൽ നിന്നാരംഭിക്കും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന ജാഥ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അടുത്ത മാസം രണ്ടിന് മഹാറാലിയോടെ ജാഥ തൃശ്ശൂരിൽ സമാപിക്കും ലലലലല കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന കേരളയാത്ര വൈകീട്ട് റാലിയോടെ തിരു വനന്തപു രത്ത് സമാ പിക്കും പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലികുട്ടി എം പി കെ എം മാണി എം എൽഎ തുടങ്ങിയവർ പങ്കെടുക്കും അഞ്ചുമാസത്തെ സാമൂഹിക സുരക്ഷാപെൻഷനും ക്ഷേമപെൻഷനും അടുത്ത മാസം അവസാനത്തോടെ വിതരണം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഡിസം ബർ മുതൽ ഏപ്രിൽ വരെ മാസങ്ങളിലെ പെൻഷനാണ് നൽകുന്നത്

സാമൂ ഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കു ന്ന വർക്ക് അടുത്തഗഡു പെൻഷൻ ലഭിക്കുന്നതിന് അർഹത പരിശോധനാ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വർഷത്തെ തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചൻ പ്രറമ്പിൽ തിരിതെളിഞ്ഞു

പരിപാടിയുടെ ഭാഗമായി സാഹിത്യ സെമിനാറും നിയമസെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്

സോപാന സംഗീതാചാര്യനായിരുന്ന രാമ പൊതുവാളിന്റെ സ്മരണയിൽ സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം വൈകിട്ട് സിനിമാ താരം രമ്യ നമ്പീശൻ ഉദ്ഘാടനം ചെയ്യും സംഗീതോത്സവത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച പക്കവാദ്യക്കാർക്ക് തിരുമാന്ധാംകുന്ന് ദേവസം ഏർപ്പെടുത്തിയ മാന്ധാദ്രി പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്യും

ഐ എച്ച് ആർ ഡിയുടെ സാങ്കേ തിക സഹായത്തോടെ സിസ്റ്റം ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോർ ഫോറിൻ ട്രാവൽ എന്ന സോഫ്റ്റ്വെയറിലാണ് ഇനി അപേക്ഷകൾ അയക്കേ ണ്ടത്

സ്റ്റേഷനകത്തെ കടയിലാണ് തീ പിടിച്ചത് ഫയർഫോഴ്സെത്തി തീ നിയന്ത്രണവിധേ യമാക്കി

ഇന്നലെ ആരംഭിച്ച അദാലത്ത് ഇന്നും തുടരുന്നുണ്ട്

ഒരു വർഷത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരി ക്കുന്നതെന്ന് സംഘാടകസമിതി ചെയർമാൻ കെ

സഹ ദേവൻ കണ്ണൂരിൽ അറിയിച്ചു നീലേശ്വരത്തെയും പരിസരത്തെയും സിമന്റ് ഗോഡൌണിലെ ചുമട്ട് തൊഴിലാളികൾക്ക് കൂലിയിൽ വർദ്ധന വരുത്താൻ ധാരണയായി